അയൽ രാജ്യങ്ങളിൽ ് നിന്നും സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ സ്ട്രീകൃഷി എസ്എഫ് പോലുള്ള സുരക്ഷാ സേനകൾ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കർണാടക മണിപ്പൂർ രാജസ്ഥാൻ ത്രിപുര എന്നീ സംസ്ഥാന ങ്ങളിൽ രണ്ട് ഘട്ടങ്ങളായും അസം ഛത്തീസ്ഗഡ് എന്നിവിട ങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളായും ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാ രാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിൽ നാല് ഘട്ടങ്ങളായും ജമ്മുകാശ്മീരിൽ അഞ്ച് ഘട്ടങ്ങളായും പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഏഴ് ഘട്ടങ്ങളുമായുമാണ് വോട്ടെടുപ്പ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വിവി പാറ്റ് ഉപയോഗിക്കും ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാവും

ജൂൺ മൂന്നിനാണ് നിലവിലെ ലോക്സഭയുടെ ് കാലാവധി അവസാനിക്കു ന്നത്

തെരഞ്ഞെടുപ്പ് തീയതി പ്രപ്പ്ഖ്യാപിച്ചതോടെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റചട്ടം നിലവിൽ വന്നു

ഇത് സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അദ്ധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു ചില രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെ ത്തിയതിനെ തുടർന്നാണ് നടപടി പ്രചരണത്തിന് പ്രതിരോധരംഗ വുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉറപ്പുവരുത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു

തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കന്നി വോട്ടർമാർ തയ്യാറ വണമെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥി കൾക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു പോളിംഗ് ശതമാന ത്തിൽ റെക്കോഡ് നേട്ടം കൈവരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയുമെന്നും ശ്രീ മോദി പ്രത്യാശിച്ചു രാജൃത്തെ തെരഞ്ഞെടു പ്പുകൾ മികച്ച രീതിയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹം ആശംസകൾ നേർന്നു

തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന അയൽക്കാരുള്ളപ്പോൾ സുരക്ഷ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ സി ഐ എസ്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ വോയിസ് തികഞ്ഞ ജാഗ്രതയോടെയാണ് രാജ്യത്തിന്റെ വികസനത്തിലും വളർച്ചയിലും സി

എഫ് ജവാൻമാർ പങ്കാളികളാകു ന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിശിഷ്ട വൃക്തികൾ മുതൽ സാധാരണ ജനങ്ങളുടെവരെയുള്ള സുരക്ഷ സി ഐ എസ്

ഐ എസ്

അഞ്ചാം ബറ്റാലിയൻ ക്യാമ്പിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രക്തസാക്ഷി സ്മാരകത്തിൽ പ്രധാന മന്ത്രി പുഷ്പചക്രവും സമർപ്പിച്ചു

ഐ എസ്

സ്തുത്യർഹ സേവന ത്തിനുള്ള പോലീസ് ഫയർ സർവ്വീസ് മെഡലുകൾ അദ്ദേഹം സമ്മാനിച്ചു

ഐ എസ്

എസ്

കേന്ദ്ര മന്ത്രിമാരായ വി

സിംഗ് കിരൺ റിജിജു ഹൻസ് രാജ് ഗംഗാറാം ആഹിർ തുടങ്ങിയവരും സുവർണ്ണ ജൂബിലി ആഘോഷ ങ്ങളിൽ പങ്കെടുത്തു

സിലിക്കോസിസ് ബാധിതരായ ഫാക്ടറി തൊഴിലാളികളുടെ പുനര ധിവാസം സംബന്ധിച്ച വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി വിഷയത്തിൽ അടുത്തവാദം കേൾക്കുമ്പോൾ നഷ്ടപരിഹാരം സംബന്ധിച്ച കാരൃങ്ങൾ പരിഗണിക്കുമെന്നും ആവശ്യമായ ഉത്തര വുകൾ നൽകുമെന്നും ബെഞ്ച് വൃക്തമാക്കി സിലിക്കോസിസ് തടയാനും തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കാനും സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് നേരത്തെ പരമോന്നത കോടതി ആവശ്യ പ്പെട്ടിരുന്നു

പ്രദേശത്ത് ഭീകരർ തമ്പടിച്ചിരിക്കുന്നതായും ഏറ്റുമുട്ടൽ തുടരുന്നതായും ആകാശവാണിയുടെ ശ്രീനഗർ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു തിരിച്ചിലിനിടെ സുരക്ഷാസേനയുടെ നേർക്ക് വെടിവെയ്പ്പുണ്ടായതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

മേഖല യിലെ സൈനിക പോസ്റ്റുകൾ ഗ്രാമങ്ങൾ എന്നിവ ഉൾപ്പെടെ നാലിടങ്ങളിലേയ്ക്കാണ് പാകിസ്ഥാൻ വെടി ഉതിർത്തത് ജമ്മുവിലെ കൃഷ്ണ ഘട്ടി മേഖലയിൽ ഇന്നു പുലർച്ചെ മോർട്ടാർ ഷെല്ലിംഗ് അടക്കമുള്ള കനത്ത പ്രക്യോപനമാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും തുടർന്ന് ഇന്ത്യൻ ക്ലിസ്നൃം തിരിച്ചടിച്ചതായും പ്രതിരോധ വക്താവ് അറിയിച്ചു

ആഡിസ് അബാബയിൽ നിന്ന് നെയ്റോബിയിലേയ്ക്കുള്ള യാത്രക്കിടെയാണ് വിമാനം തകർന്നു വീണത് മരണമടഞ്ഞവരിൽ എട്ട് വിമാന ജീവനക്കാരും ഉൾപ്പെടുന്നു

അപകട കാരണം വ്യക്തമല്ല എത്യോപ്യയൻ പ്രധാനമന്ത്രി അബിയ അഹമ്മദ് മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെ ടുത്തി

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം വോയിസ് മൊഹാലിയിൽ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ ശിഖർ ധവാൻ എന്നിവരുടെ മിന്നുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഇന്തൃയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്

ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടെന്ന റെക്കോർഡും ഇന്നത്തെ മത്സരത്തിൽ പിറന്നു

നേരത്തെ ടോസ് നേടിയ ഇന്ത്യൂൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുക്യായിരുന്നു ആസ്ട്രേലിയക്കായി പി

ന്യൂസ് ഡെസ്ക് ആകാശ്ശവാണി

തൊഴിൽ മന്ത്രാലയ സെക്രട്ടറി ഹീരാലാൽ സമരിയ നഗരവികസന മന്ത്രാലയ സെക്രട്ടറി ദുർഗ ശങ്കർ മിശ്രയ്ക്ക് ഇത് സംബന്ധിച്ച് കത്തെഴുതി

വിഖ്യാത പത്രപ്രവർത്ത കൻ കുൽദീപ് നയ്യാർ പ്രശ്സ്ത നടൻ ഖാദർ ഖാൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതി്യായി ലഭിച്ച പദ്മ പുരസ്ക്കാരങ്ങളും അകാലിദൾ നേതാവ് സുഖ്ദേവ് സിംഗ് ദിൻഷായ്ക്ക് ലഭിച്ച പദ്മഭൂഷൺ പുരസ്ക്കാരവും ഇതിൽ ഉൾപ്പെടും ഉപരാഷ്ട്രപതി എം

ഇറാൻ പ്രസിഡന്റ് ഹസ്സൻ റുഹാനിയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇറാൻ സുരക്ഷാ ഗാർഡുകൾക്കെതിരെയുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അടുത്തിടെ മോശമായിരുന്നു

ഈ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യ കത കൂടിക്കാഴ്ചയിൽ ചർച്ചാവിഷയമായി ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ സൌദി അറേബ്യ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതു കൊണ്ടുതന്നെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ സൌദി അറേബൃയ്ക്ക് നിർണ്ണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കൂടിക്കാഴ്ചയ്ക്കുശേഷം ഔദ്യോഗിക വൃത്തങ്ങൾ ന്യൂഡൽഹി യിൽ പുറത്തിറക്കിയ വാർത്താകുറിപ്പിൽ അറിയിച്ചു